പഞ്ചാബ് നാഷണൽ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിലെ പ്രതി ന് മെഹുൽ ചോക്സിയുടെ അനുചരനെ എൻഫോഴ്സ്മെന്റ ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു

ചിത്തിര ആട്ടതിരുനാൾ ചടങ്ങുകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് രാത്രി അടയ്ക്കും

കൂടുതൽ വിവരങ്ങളുമായി സ്ുല്ലൈമാൻ

ബെല്ലാരിയിൽ വി

മാണ്ഡ്യ ലോക്സഭ മണ്ഡലത്തിൽ ജെഡിഎസിലെ ശിവരാം ഗൌഡ തൊട്ടടുത്ത സ്ഥാനാർത്ഥി ബിജെപിയിലെ എതിർ ഡോ

ഷിമോഗയിൽ ബിജെപിയിലെ ബി

രാമനഗരം നിയമസഭാ മണ്ഡലത്തിൽ മുഖ്യമന്ത്രി എച്ച്

കുമാരസ്വാമിയുടെ ഭാര്യ അനിതകുമാരസ്വാമി ഒരു ലക്ഷത്തി ഒമ്പതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു

ന്യൂസ് ഡസ്ക് ആകാശവാണി

ഛത്തീസ്ഗഡിൽ ധാരാള്ം ഇടതു തീവ്രവാദികൾ കീഴടങ്ങിയതിൽ ശ്രീ

കൂടുതൽ പേർ കീഴടങ്ങി രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് വരുമെന്ന് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു കീഴടങ്ങുന്നവർക്ക് മികച്ച പുനരധിവാസ പദ്ധതികൾ ഛത്തീസ്ഗഡ് ഗവണ്മെന്റ് ഏർപ്പെടുത്തുന്നുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി രമൺസിംഗിന്റെ പ്രവർത്തനങ്ങൾ ഛത്തീസ്ഗഡിന്റെ സുരക്ഷാ പരിസ്ഥിതി മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്ന് ശ്രീ

മെഹുൽ ചോക്സിയുടെ അനുചരനായ ദീപക് കുൽക്കർണിയാണ് കൊൽക്കത്തയിൽ അറസ്റ്റിലായത്

ഹോങ്കോങിലെ ചോക്സിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ് ദീപക് കുൽക്കർണി ഇയാൾക്കെതിരെ ലുക്ക്ഒൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു

ഇന്നലെ വൈകിട്ട് ശബരിമല ക്ഷേത്രനട തുറന്നെങ്കിലും ഇന്ന് രാവിലെ അഞ്ച് മണിക്ക് പ്രത്യേക പൂജയ്ക്കായി നട വീണ്ടും തുറക്കുകയായിരുന്നു

ക്ഷേത്രനടയിലും ചുറ്റുവട്ടത്തും അനിഷ്ടസംഭവങ്ങൾ ഒഴിവാക്കുന്നതിനായി ഗവണ്മെന്റും പോലീസും കനത്ത ജാഗ്രതയാണ് പൂലർത്തുന്നത്

ശനിയാഴ്ച മുതൽ ഖനനം അടക്കം എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നിർത്തിവച്ചിരിക്കുകയാണ് പത്ത് ദിവസത്തെ അന്തരീക്ഷ ശുചീകരണ പ്രവർത്തനങ്ങൾ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നു ഇതിലൂടെ മലിനീകരണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും വേഗത്തിൽ നടപടി സ്വീകരിക്കുകയുള്ള ചെയ്യും

ഹിസ്ബുൾ മുജാഹിദ്ടീൻ ഭീകരരാണ് കൊല്ലപ്പെട്ടത്

ബിജെപി പിന്തുണയോടെയാണ് ജുനൈദ് അസിം മട്ടുവിന്റെ വിജയം

പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടു വർഷക്കാലത്തെ ഭരണത്തിന്റെ ജനഹിത പരിശോധനയായിട്ടാണ് പ്രസ്തുത തെരഞ്ഞെടുപ്പ് വീക്ഷിക്കപ്പെടുന്നത് കിഴക്കൻ സംസ്ഥാനങ്ങളായ മെയ്ൻ ന്യൂഹാംപ്ഷയർ ന്യൂജഴ്സി ന്യൂയോർക്ക് വെർജീനിയ എന്നിവിടങ്ങളിൽ പ്രാദേശിക സമയം രാവിലെ ആറിന് വോട്ടെടുപ്പ് ആര്യംഭിച്ചു് പ്രതിനിധി സഭയിലെ ഭൂരിപക്ഷം നിലനിർത്താനുള്ള് ു അവസാനവട്ട ശ്രമത്തിലാണ് പ്രസിഡന്റ് ഡൊണാൾഡ്ട് ട്രിപ്

പുതുതായി നിർമ്മിച്ച ഭാരത് രത്ന അടൽ ബിഹാരി വാജ്പേയ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് മൂന്ന് മത്സരങ്ങളുള്ള പരസ്പ്രമിൽ ആദ്യ മത്സരം ജയിച്ച് ഇന്ത്യ മുന്നിലാണ്

ഏതാനും ദിവസം മുമ്പ് ചുമതലയേറ്റ പ്രധാനമന്ത്രി മഹിന്ദാ രാജ പാക്സെയുടെ മന്ത്രിസഭയിൽ നിന്ന് ഒരു മന്ത്രി രാജി വച്ച് പുറത്താക്കപ്പെട്ട റനിൽ വിക്രമസിംഗയ്ക്കൊപ്പം ചേർന്നതോടെയാണിത് കൂടുതൽ വിവരങ്ങളുമായി സുലൈമാൻ

പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ളത് റനിൽ വിക്രമസിംഗയ്ക്കാണെന്നും അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായി താൻ അംഗീകരിക്കുന്നുവെന്നും മൈത്രിപാല സിരിസേനയ്ക്കയച്ച കത്തിൽ മനുഷനയനക്കരെ ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ അവസരം ലഭിച്ചാൽ രാജപാകസെയുടെ ഒപ്പമുള്ള കൂടുതൽ ആൾക്കാർ റനിൽ വിക്രമസിംഗയ്ക്കൊപ്പം ചേരുമെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയായ യൂണൈറ്റഡ് നാഷണൽ പാർട്ടി ആപ്പിക്ട്ശപ്പെട്ടു

അതിനിടെ ശ്രീലങ്കയിലെ ്യുഎസ്

രാഷ്ട്രീയ അനിശ്ചിതത്വം അവസാനിപ്പിക്കാൻ പാർലമെന്റ് വിളിച്ച് കൂട്ടണമെന്ന് അവർ ആവശ്യപ്പെട്ടു ന്യൂസ് ഡസ്ക്ക് ആകാശവാണി

മീ

ബീഹാറിൽ സംഘടിപ്പിച്ച ഗംഗാഗ്രാമ സച്ഛതാ സമ്മേളനത്തിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു അവർ നാലായിരത്തോളം സ്വയംഗ്രാഹികളും ഗംഗാവോളന്റിയർമാരും പഠിതാക്കളും കൂടാതെ നാനാ മേഖലകളിലെ ജനങ്ങളും സമ്മേളനത്തിൽ പങ്കെടുത്തു

കൂടുതൽ പേർ ദീപാവലിക്ക് ശേഷം പത്രിക സമർപ്പിക്കും